സ്ഥാനാർത്ഥി ്പട്ടിക പുറത്തിറക്കി കോൺഗ്രസ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും

ജെ

തീരുമാനം പ്രചാരണ പരിപാടികളിൽ സജീവമായി ഇടതുപക്ഷം

സ്വീകരിച്ചു തുടങ്ങി

അമൃത് മഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ നിർവ്വഹിച്ചു

തുടക്കം

കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും എം

എം ഷാജി അഴീക്കോടും പി

ഇ ഗഫൂർ കളമശ്ശേരിയിലും എ

എം അഷ്റഫ് മഞ്ചേശ്വരത്തും നൂർബിന റഷീദ് കോഴിക്കോട് സൌത്തിലും ജനവിധി തേടും

കെ ബഷീർ കെഎൻ എ ഖാദർ

എ നെല്ലിക്കുന്ന് ടി വി ഇബ്രാഹീം യു എ ലത്തീഫ് മഞ്ഞളാംകുഴി അലി ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയ മുതിർന്ന നേതാക്കളും ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ് ഉൾപ്പെട്ടിട്ടുണ്ട്

പി അബ്ദുസമദ് സമദാനി ലോക്സഭയിലേക്കും ഒഴിവുവരുന്ന രാജ്യസഭ സീറ്റിലേക്ക് പി

പുനലൂർ ചടയമംഗലം പേരാമ്പ്ര മണ്ഡലങ്ങളില്ലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം മലപ്പുറത്ത് അറിയിച്ചു

ഇന്ന് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമതി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം

യുഡിഎഫിലെ സീറ്റ് വിഭജനത്തിലും ധാരണയായി

സ്ഥാനാർത്ഥി പട്ടികയിൽ എം പിമാരെയും ഉൾപ്പെടുത്താം എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതായും സൂചനയുണ്ട്

അതേസമയം നേമം മണ്ഡലത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കത്തിനും അൽപസമയത്തിനകം തീരുമാനമാകും ഉമ്മൻ ചാണ്ടി കെ

എന്നാൽ പുതുപ്പള്ളി വിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്കുമില്ലെന്ന് ശ്രീ

ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെ ഉണ്ടായേക്കുമെന്നാണ് സൂചന ദേശീയ നേതൃത്വം പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപം നൽകും

ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എം

ശ്രീധരൻ എന്നിവർക്ക് പുറമേ മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ എം

രമേശ് സി

പത്മനാഭൻ പി

കൃഷ്ണദാസ് എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും അതേസമയം ബി ഡി ജെ എസ് ഇന്ന് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിട്ടു

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധർമടം മണ്ഡലത്തിൽ പ്രചാരണം നടത്തി

വോട്ടർമാർ ്നേരിൽക്കണ്ട് വോട്ട് ചോദിക്കുന്നതിനും പല മണ്ഡലങ്ങളിലും തുടക്കമായി

മുഹമ്മദ് ഇക്ബാലായിരിക്കും സ്ഥാനാർത്ഥി

കുറ്റ്യാടി മണ്ഡലം കേരള കോൺഗ്രസിന് നൽകാനുള്ള സിപിഎം തീരുമാനത്തിനെതിരെ മണ്ഡലത്തിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു

ഒൻപത് മണ്ഡലങ്ങളുള്ള ആലപ്പുഴ ഇടതിന് ശക്തമായ മേൽക്കൈയുള്ള ജില്ലയായി ആണ് കണക്കാക്കപ്പെടുന്നത് യുഡിഎഫും ബിഡിജെഎസിലൂടെ എൻഡിഎയും ജില്ലയിൽ ശക്തമായ സാന്നിധ്യമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

കേരളത്തിൽ ബി ജെ

ധർമടം പുതുപ്പള്ളി ഹരിപ്പാട് മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു

പ്രത്യേക പൊതു നിരീക്ഷകനായി ജെ രാമകൃഷ്ണ റാവുവിനേയും പോലീസ് നിരീക്ഷകനായി ദീപക് മിശ്രയും ചെലവ് നിരീക്ഷകനായി പുഷ്പീന്ദർ സിംഗ് പൂനിയയേയും ആണ് നിയോഗിച്ചിട്ടുളളത്

സബർമതി ആശ്രമത്തിൽ നിന്നാ രംഭിച്ച് ദണ്ഡി വരെ നീളുന്ന പദയാത്രയും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു

കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിനു കീഴിലുള്ള റീജ്യയണൽ ഔട്ടറീച്ച് ബ്യൂറോ സ്വാതന്തൃ സമരത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ച ചിത്ര പ്രദർശനവും ഗവർണർ സന്ദർശിച്ചു കുണ്ടറ ് വിളംബര സ്മാരകത്തിലെ പുഷ്പാർച്ചന പദയാത്ര പുസ്തകോത്സവം ചിത്ര പ്രദർശനങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു പയ്യന്നൂരിലെ ഗാന്ധിപാർക്കിൽ പുസ്തക പ്രദർശനവും ഉപ്പു കുറു ക്കലും വിദ്യാർഥികളുടെ സൈക്കിൾ റാലിയും അമൃത് മഹോ ത്സവത്തിന്റെ ഭാഗമായി നടന്നു

വയനാട്ടിൽ മാനന്തവാടി ഗവൺമെന്റ് യു

എസ് ഓ്ഡിറ്റോറിയത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും കേരള സംഗീത നാടക അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫ

പഴശ്ശിരാജ അനുസ്മരണം പുസ്തകപ്രദർശനം സ്വാതന്തൃസമര സേനാനികളെയും ഗാന്ധിയന്മാരെയും ആദരിക്കൽ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു

പരിസര ശുചീകരണം സൈക്കിൾ റാലി എക്സിബിഷൻ ഉപന്യാസ മത്സരം എന്നിവ ദ്വീപ് തലത്തിൽ നടന്നു

വരുന്നു

പി ജയരാജൻ കെ ടി ജലീൽ എന്നിവരും വി ശിവൻകുട്ടി കെ അജിത് കെ കുഞ്ഞഹമ്മദ് സി

കേസ് പിൻവലിക്കാനുള്ള അപേക്ഷ തള്ളിയ സിജെഎം കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തു കൊണ്ടായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ശബരിമല മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം മറ്റന്നാൾ തുറക്കും

ഇതടക്കമുള്ള അച്ചടക്ക നടപടികൾ ഉൾപ്പെടുത്തി പരീക്ഷ മാന്വൽ ഭേദഗതി ചെയ്യണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു

ഇരുപതിനായിരത്തിലേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു

രജിസ്ട്രർ ചെയ്തുവന്നവരുടെ കൂടെ വന്ന അവരുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൌകരൃമൊരുക്കി കൊടുത്തിരുന്നു

കേസ് ഇന്ന് പരിഗണിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്

രാത്രി ഏഴിനാണ് മത്സരം പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്